അസമിൽ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു

അസമിലെ ധേമാജിയിൽ എണ്ണ പ്രകൃതി വാതക മേഖലകളിലെ സുപ്രധാന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയ്ട്ടുയിരുന്നു അദ്ദേഹം നയം ശരിയാണെങ്കിൽ ഉദ്ദേശം വ്യക്തമാണ്ടെങ്കിൽ ്ലക്ഷ്യം സ്വാഭാവികമായി പൂർത്തീകരിക്കപ്പെടുമെന്ന് പ്രധാനമ്മിന്ത്രി പ്റഞ്ഞു സമീപ വർഷങ്ങളിൽ എണ്ണ സംഭരണത്തിനും ശുദ്ധീകര്ണത്തിനുമുള്ള സൌകര്യങ്ങൾ രാജ്യത്ത് വലിയ തോതിൽ ്വർ ്ഷിച്ചിട്ടുണ്ട് ഇത് വലിയ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അടുക്കളയിൽ വലിയ അദ്ധാനവും സമയവും ചിലവഴിച്ചിരുന്ന സ്ത്രീകൾക്ക് ഉജ്ജ്വല യോജന പുതിയ പ്രതീക്ഷകൾ നൽകി അസമിനോടും വടക്ക് കിഴക്കൻ മേഖലയോടും മുൻ സർക്കാരുകൾ കാണിച്ച അവഗണന മറികടക്കാനാണ് എൻ ഡി എ സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി

ഇന്ത്യൻ ഓയിൽ ബൊംഗൈഗാവ് റിഫൈനറിയിലെ യൂണിറ്റ് മധുബനിലെ സെക്കൻഡറി ടാങ്ക് ഫാം എന്നിവയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു വൈകിട്ട് പശ്ചിമബംഗാളിലെത്തുന്ന ശ്രീ നരേന്ദ്ര മോദി ഹൂഗ്ലിയിൽ റെയിൽവേ പദ്ധതികൾക്കും തുടക്കം കുറിക്കും

പ്രതിരോധ മേഖലയ്ക്ക് അനുവദിച്ച ബജറ്റ് വിഹിതത്തിന്റെ ഫലപ്രദമായ നടപ്പാക്കൽ എന്ന വിഷയത്തിലുള്ള വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിരോധ മേഖലയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സാങ്കേതികവിദ്യ സ്വീകരിക്കുന്നതും ആയുധ സംഭരണം പരമാവധി കുറയ്ക്കുന്ന നയമാണ് കേന്ദ്രസർക്കാർ സ്വീകരിച്ചുവരുന്നത് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് ഇത് നമ്മെ കൂടുതൽ അടുപ്പിക്കും കൂടുത്ത്ൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വഴിയൊരുക്കുമെന്നും ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

പ്രതിരോധ മേഖലയിൽ ആയുധ സംഭരണത്തിനുള്ള കാലതാമസം ഒഴിവാക്കും പൊതു സ്വകാര്യ പങ്കാളിത്തതോടെ ഒട്ടേറെ കാര്യങ്ങൾ പ്രതിരോധ രംഗത്ത് ചെയ്യാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു

ടി ഖരഗ്പൂരിൽ സ്ഥാപിച്ച ശ്യാമ പ്രസാദ് മുഖർജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും

ഐ

പശ്ചിമ ബംഗാൾ ഗവർണർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രവിദ്യാഭ്യാസ സഹമന്ത്രി എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഖരഗ് പൂരിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആരംഭിച്ചത്

വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടുതിനെ തുടർന്നാണ് രാജി

വിശ്വാസ വോട്ടെടുപ്പിന് മുൻപായി വി നാരായണ സ്വാമിയും ഭരണപക്ഷ എം എൽ എ മാരും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി തുടർന്ന് വിശ്വാസം നേടിയെടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചു തെരഞ്ഞെടുപ്പിന് രണ്ട് മാസം മാത്രം ബാക്കി നിൽക്കെയാണ് പുതുച്ചേരിയിൽ കോൺഗ്രസ് സർക്കാർ വീണത് മുൻ ലഫ്റ്റനന്റ് ഗവർണർ കിരൺബേദിയ്ക്കെതിരെയും കേന്ദ്രസർക്കാരിനെതിരെയും ഇന്ന് രാവിലെ സഭയിൽ വി

കോൺഗ്രസിന്റെ അഞ്ച് എംഎൽ എ മാരടക്കം ഭരണകക്ഷിയിൽ നിന്ന് ആറ് എം എൽ എ മാരാണ് രാജിവച്ചത്

കോൺഗ്രസ് ബി ജെ

ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് അമേരിക്കയിലാണ്

എന്നാൽ യൂറോപ്പിൽ ഇൌ വാക്സിനുകളുടെ ലഭൃതയിൽ കുറവ് നേരിടുന്നുണ്ട്

ക്കോവിഡ് കണക്കിലെടുത്ത് ഓൺലൈൻ സംവിധാനത്തിലൂടെയായിരിക്കും മേളയുടെ നടത്തിപ്പ്

ടി ഗാന്ധിനഗറിന്റെ കീഴിലെ ക്രിയാത്മക പഠന കേന്ദ്രം സി സി എൽ

പഠനസഹായിയും ശാസ്ത്രാധിഷ്ഠിതവുമായ കളിക്കോപ്പ് നിർമ്മിക്കുന്ന രാജ്യത്തെ ഏക കേന്ദ്രമാണ് ഗാന്ധിനഗർ ഐ ഐ

കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് താനൂരിലും വെള്ളയിലും തുറമുഖങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്

ജോസ് വിഭാഗത്തിന് രണ്ടില ചിഹ്നം അനുവദിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു സിംഗിൾ ബെഞ്ച്വിധിക്കെതിരേ പി

ജോസഫ് നൽകിയ അപ്പീലാണ് തള്ളിയത്

നൌഗാം റെയിൽവെ സ്റ്റേഷനടുത്തുള്ള ഒരു പാലത്തിനടിയിലാണ് ഇന്ന് രാവിലെ അജ്ഞാത വസ്തു കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഉടൻ തന്നെ ബോംബ് സ്കാഡിനെ വിവരം അറിയിക്കുകയായിരുന്നു

അതിനിടെ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽപ്പെടുത്തിച്ചു ആ രാജ്യത്തിനെതിരെ സമിതി ഏർപ്പെടുത്തിയ സാമ്പത്തിക് നടപടി നടപ്പുസമ്മേളനത്തിലും നീക്കിയേക്കില്ല എന്നാണ് ക്ലിക്കാർതുവേയുള്ള വിലയിരുത്തൽ ആഗോള ഭീകര പ്രവർത്തനത്തിന്റെ പാകിസ്ഥാൻ സഹായം നൽകുന്നത് ആരോപിച്ചായിരുന്നു സമിതിയുടെ നേരത്തെയുള്ള നടപടി